ന് റഫാൽ ഇടപാട്ട് കേസ്റ്റിൽ പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി

ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചേയ്തു

രണ്ടാമത്തെയും അവസാനത്തെയും മൽസരം ഇന്ന് ബംഗളുരുവിൽ

പ്രത്യാക്രമണത്തിൽ അഞ്ച് പാക് സൈനിക പോസ്റ്റുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു നിയന്ത്രണരേഖയ്ക്ക് സമീപം അവ്നൂർ നൌഷേര കൃഷ്ണഖാട്ടി മേഖലകളിലാണ് പാക് സൈന്യം വെടിവയ്പ്പ് നടത്തിയത് ശക്തമായ മോർട്ടാർ ആക്രമണമാണുണ്ടായത് ഇന്ത്യൻ സൈന്യം ശക്തിയായി തിരിച്ചുടിച്ചു അതിർത്തിക്കപ്പുറത്തെ പാക് ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു പാക് സേനയുടെ വെടിനിർത്തൽ കരാർ ലംഘനം ഇന്ത്യൻ ഭാഗത്ത് ആൾനാശമുണ്ടായിട്ടില്ല

ഷ്ടോപ്പിയാൻ ജില്ലയിൽ ഷെല്ലാക്രമണം തുടരുകയാണ്

എഫും പോലീസും മേഖലയിൽ വ്യാപകമായ തെരിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന സർവ്വകക്ഷിയോഗം സൈനിക നടപടിക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ

എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേ ശബ്ദത്തിലാണ് സംഭവത്തോട് പ്രതികരിച്ചതെന്ന് സുഷമാ സ്വരാജ് യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോയെ വ്യോമാക്രമണ വിവരം അറിയിച്ചതായി വിദേശകാര്യമന്ത്രി യോഗത്തിൽ വെളിപ്പെടുത്തി വ്യോമസേനയെ അഭിനന്ദിക്കുന്നതായി ്കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് പറഞ്ഞു ഭീകരതയെ അമർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പിന്തുണ എപ്പോഴുമുണ്ടാകുമെന്ന് ശ്രീ

ഭീകരരെയും ഭീകരതാവളങ്ങളെയും മാത്രം ലക്ഷ്യമാക്കിയ ശരിയായ നടപടിയായിരുന്നു ഇതെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര മന്ത്രിമാരായ അരുൺ ജയ്റ്റ്ലി രാജ്നാഥ് സിംഗ് നാഷനൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ടി

യിലെ സതീഷ് ചന്ദ്ര മിശ്ര സി

ഐ നേതാവ് ഡി രാജ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പങ്കെടുത്തവർക്കുള്ള സർട്ടീഫിക്കറ്റുകൾ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാത്തോസ് പ്പിതരണം ചെയ്തു സ്വന്തം കരുത്തും കഴിവും മനസ്സിലാക്കി പുതിയ ഇന്ത്യയ്ക്കുവേണ്ടി പ്രവർത്തിക്കാൻ യുവജനങ്ങളോട് ശ്രീ

എന്നാൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്ന നിലപാടായിരുന്നു സുപ്രിംകോടതി നേരത്തെ എടുത്തത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

കൌൾ എം

ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

ഇരു് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന് കരുത്ത് പകരുന്ന എട്ടാമത് സൈനിക അഭ്യാസമാണിത്

എസിലെ മുൻ പാക് സ്ഥാനപതി ഹുസൈൻ ഹഖാനി പറഞ്ഞു ഭീകരതയ്ക്കെതിരായ ലോകരാഷ്ട്രങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇത് സൂചിപ്പിക്കുന്നത് ചൈന പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കാതെ ഇരുരാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും ഹഖാനി പറഞ്ഞു

ഇത്തരമൊരു ഉത്തരവ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കോടതി വിലയിരുത്തി ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ സ്വകാര്യവൃക്തി നൽകിയ ഹർജിയിൻ മേലാണ് ഹൈക്കോടതി ഉത്തരവ്

ഇതു സംബന്ധിച്ച് കോടതി ഗവൺമെന്റിനോട് വിശദീകരണം തേടി

ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണമ്പേന്മയും പ്രാപ്യതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാ്ണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മന്ത്രി ഡോ

അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും പ്രവേശനം പരീക്ഷാ നിട്ടത്തിപ്പ് ഫലപ്രഖ്യാപനം എന്നിവ ഏകീകരിക്കും

എഞ്ചിനീയറിങ് ഒഴികെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള സംസ്ഥാനത്തെ പ്രവേശന പരീക്ഷകൾ ഈ വർഷം മുതൽ ഓൺലൈനാകും

നിർദ്ദേശം നടപ്പാക്കിയില്ലെങ്കിൽ തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കും ഫീൽഡ് ജീവനക്കാർക്കുമെതിരെ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു അനധികൃത ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ കൂടാതെ ക്രിമിനൽ കേസും എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു

ബംഗളൂരുവിൽ രാത്രി ഏഴിനാണ് കളി ആരംഭിക്കുന്നത്

വിശാഖപണത്ത് ഞായിറാഴ്ച്ച നടന്ന ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ മൂന്നുള്ളിവീക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു ആവ്യേശകരമായ മത്സരത്തിൽ അവസാന ്പന്തിലായിരുന്നു് ഓസ്ട്രേലിയയുടെ വിജയം ഇന്നത്തെ മത്സരം വിജയിച്ച് സ്മനില നേടാനാണ് ഇന്ത്യയുടെ ശ്രമം

സി സി യുടെ വിലക്ക്

സി യുടെ അഴിമതി വിരുദ്ധ ചട്ടം ലംഘിച്ചതിന് രണ്ടു വർഷത്തേയ്ക്കാണ് വിലക്ക് ശ്രീലങ്കൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണത്തോട് സഹകരിക്കാത്തിനാണ് നടപടി ജയസൂര്യ ശ്രീലങ്കൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരിക്കെ നടന്ന ക്രമക്കേടുകളാണ് ഐ

സി അന്വേഷിക്കുന്നത്

എസ് എഫ് ഷൂട്ടിങ് ലോകകപ്പിലെ നാലാം ദിവസം ഹംഗറിയുടെ വെറോണിക്ക മേജറിന് സ്വർണ്ണം

മൽസരങ്ങൾ ഇന്ന് സമാപിക്കും

കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ

പ്രസിഡന്റ് ഡോണൾഡ് ട്രൂപ്പും ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും തമ്മിൽ ഉവെകിട്ട് അനൌപചാരിക സംഭാഷണം നടത്തും നാളെയാണ് ഉച്ചകോടി വ്യാഴാഴ്ച ഇരു നേതാക്കളും ഔപചാരിക സഭ്ഭാഷ്ണം നടത്തുമെന്ന് വൈറ്റ്ഹൌസ് വക്താവ് സാറ ഡാന്റേഴ്സ് അറിയിച്ചു കിം ജോങ് ഉൻ ഹാനോയിൽ എത്തിയിട്ടുണ്ട്

സിംഗപ്പൂരിൽ നടന്ന ആദ്യ ഉച്ചകോടിയെ തുടർന്ന് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഹാനോയ് ഉച്ചകോടി നടക്കുന്നത് കൊറിയൻ ഉപഭൂഖണ്ഡം ആണവ മുക്തമാക്കുക എന്നതായിരിക്കും പ്രധാന അജണ്ട എന്ന് കരുതപ്പെടുന്നു ഉത്തരകൊറിയക്കെതിരെ നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ഉപരോധം നീക്കുന്ന കാര്യവും ഉച്ചകോടി ചർച്ച ചെയ്യും കൊറിയൻ മേഖലയിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന നിർദ്ദേശത്തിന് അമേരിക്ക ചർച്ചയിൽ പരിഗണന നൽകുമെന്ന് പാശ്ചാത്യ സമൂഹം വിലയിരുത്തുന്നു

തുടർച്ചയായ രണ്ടാം തവണയാണ് അടുത്ത നാല് വർഷ കാലയളവിലേക്ക് ബുഹാരി തെരഞ്ഞെടുക്കപ്പെട്ടത്

കൽബുർഗി വയ്ക് സംബന്ധിച്ച അന്വേഷണം മാധ്യമപ്രവർത്തക ഗൌരീ ല്ങ്കേഷിന്റെ വധമന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി കൈമാറി കർണ്ണാടക ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് കോടതി നടപടി